കടാശ്ചാസ വായ്പാ പരിധി രണ്ടുലക്ഷമാക്കി

വായ്പ ലഭൃമാക്കാൻ മുന്ത്രിസ്ഭയുടെ അനുമതി പൊതുവിഭാഗത്തില്ലെ പിന്നാക്കക്കാർക്കുള്ള ന് സംവരണം നടപ്പാക്കാൻ കമ്മീഷനെ നിയമിക്കും

പദ്ധതിയുടെ ചികിത്സാ കാർഡ് വിതരണം ഇന്ന്

കേന്ദ്രപെൻഷൻ പദ്ധതിയ്ക്ക് ഇന്ന് തുടക്കം

ഇന്ന് നാഗ്പൂറിൽ

പൊതുമേഖലാ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള എല്ലാ വായ്പകൾക്കും ഇത് ബാധകമാണെന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

കടാശ്ചാസ കമ്മീഷൻ നിശ്ചയിക്കുന്ന വായ്പയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടുലക്ഷമാക്കി വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

ശ്രേണികളിൽകൂടി സംവരണം ബാധകമാക്കും

പൊതുവിഭാഗത്തിലെ പിന്നാക്കക്കാർക്കുള്ള സംവരണം നടപ്പാക്കാൻ കമ്മീഷനെ നിയമിക്കും നവകേരള നിർമ്മാണത്തിന് ലോകബാങ്ക് വായ്പ എടുക്കാനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി

ജൂൺ ജൂലൈ മാസത്തോടെ വായ്പ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ജെ പിയുടെ പരിവർത്തൻ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ നാലു മേഖലകളിലായി തിരിച്ച് നാല് ജനറൽ സെക്രട്ടറിമാരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം മേഖലാ യാത്രയ്ക്ക് കെ സുരേന്ദ്രനും എറണാകുളത്ത് എ

രമേശും യാത്ര നയിക്കും

മന്ത്രി എ

ആദ്യ ഘട്ടത്തിൽ വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ളൂ ഭാഗത്തെ സംസ്ഥാന ദേശീയ പാതകളിലെ ദൃശ്യങ്ങൾ ചേവായൂരിൽ ലഭ്യമാകും ടൂറിസം കടകംപള്ളി ലോക ടൂറിസം ഓർഗനൈസേഷൻ മുന്നോട്ടുവെച്ച എല്ലാവർക്കും ടൂറിസം എന്ന പ്രമേയം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

അന്താരാഷ്ട്ര തലത്തിൽ ടൂറിസത്തെ മാർക്കറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിച്ചുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു ശിവരാത്രി ശിവരാത്രി മഹോൽസവം പ്രമാണിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻതിരക്ക് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ബലിതർപ്പണം നടത്തിയത് ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് തീർത്ഥാടകർക്ക് വിപുലമായ സൌകര്യങ്ങളാണ് സംഘാടകരായ തിരുവിതാംകൂർ ദേവസ്വംബോർഡും ആലുവ നഗരസഭയും ഒരുക്കിയിട്ടുള്ളത്

കനത്ത സുരക്ഷയാണ് മിണ്ണപ്പുറത്തും പരിസരപ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്

എസ് ആർ ടി

തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആലുവ നഗരസഭ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണനമേള സജ്ജീകരിച്ചിട്ടുണ്ട്

ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ കിഫ് ബി മുഖാന്തിരം ഗവൺമെന്റ് കോടി രൂപ ശബരിമല പത്ത് ഇടത്താവളത്തിനായി അനുവദിച്ചിട്ടുണ്ട് ചെന്നൈ എക്സപ്രസ് തെങ്കാശി വഴിയുള്ള കൊല്ലം ചെന്നൈ എഗ്മോർ പ്രതിദിന എക്സ്പ്രസ് ട്രെയിൻ കൊല്ലത്ത് നിന്ന് സർവീസ് ആരംഭിച്ചു ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് എത്തിയ എക്സ്പ്രസ് ട്രെയിനിനെ എൻ

തുടർന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും ആറ്റിങ്ങൽ പാലക്കാട് ഇടുക്കി കണ്ണൂർ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം പി മാർക്ക് വീണ്ടും അവസരം നൽകുമെന്നാണ് സൂചന

സംസ്ഥാനതല ഉദ്ഘാടനം വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

ശൈലജ അധ്യക്ഷയായിരിക്കും കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളേയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയേയും സംയോജിപ്പിച്ചുകൊണ്ടാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്

തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും പ്രദ്ധതി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും

നിലവിൽ ആർ എസ് ബി

ചിസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുബങ്ങളും ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഗവൺമെന്റ് നിയോഗിച്ച ഗുലാത്തി ഇൻസ്റ്റിറ്റിയൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ ഡയറക്ടർ ചെയർമാനായുള്ള വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത പാക്കേജ് നിരക്കുകൾക്ക് ഗവൺമെന്റ് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട്

ഏപ്രിൽ ഒന്നുമുതൽ പദ്ധതി സംസ്ഥാനത്ത് പ്രാബലൃത്തിലാക്കാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി കെ

മുങ്ങിത്താഴുകയായിരുന്ന മൽസ്യബന്ധന ബോട്ടിൽ നിന്നാണ് ഇവരെ നാവികസേന രക്ഷപ്പെടുത്തിയതെന്ന് പ്രതിരോധവക്താവ് അറിയിച്ചു

പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രം യോഗി മാൻധൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അൽപ്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും പ്രതിമാസം പതിനയ്യായിരമോ അതിൽ കുറവോ വരുമാനമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ

കർഷകത്തൊഴിലാളികൾ ബീഡി തൊഴിലാളികൾ റിക്ഷാ തൊഴിലാളികൾ ഉച്ചുഭക്ഷണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പദ്ധതിയിൽ തെരുവ് അംഗങ്ങളാകാം

ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മൽസരം ഇന്ന്

വൈദ്യുത പദ്ധതികൾ വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി സംസ്ഥാനത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി എം

ഒ സ്കൂൾ വിദ്യാർത്ഥികളിൽ ബഹിരാകാശ ശാസ്ത്ര അവബോധം വളർത്താനുള്ള ഐ

പദ്ധതിയനുസരിച്ച് ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ഐ എസ് ആർ ഒ കൂട്ടികൾക്ക് അടിസ്ഥാന വിവരങ്ങൾ പകർന്നു നൽകും

ഈ മാസം അവസാനത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും പെൻഷൻ കേരള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ ഉറപ്പുവരുത്തുന്ന പദ്ധതി സംസ്ഥാനത്തും ഇന്ന് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ് അദ്ധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അംഗങ്ങൾക്കുള്ള കാർഡ് വിതരണം നടത്തി

പുൽവാമയിലെ ത്രാലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്